ബഹുമാനിക്കുന്നുവെന്നും ഒരു ഭാഷയും രാജ്യത്തിന്റെ ഒരുഭാഗത്തും അടിച്ചേൽപ്പിക്കില്ലെന്നും വിദേശകാര്യമന്ത്രി എസ്

ഫൈനലിലേക്ക് റഫേൽ നദാൽ റോജർ ഫെഡറർ എന്നിവർ ഉൾപ്പെടെ പ്രമുഖ താരങ്ങൾ സ്ഥാനം ഉറപ്പിച്ചു

അതിർത്തിയിലെ സുരക്ഷാ സ്ക്രിതി വിലയിരുത്തും കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

ഇന്ത്യ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിലുള്ള സിയാചിൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സൈനികമേഖലയാണ്

സൈനികരും ഉദ്യോഗസ്ഥരും നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അവരോട് സന്ദർശനവേളയിൽ രാജ്യരക്ഷാമന്ത്രി ആശയവിനിമയം നടത്തും

സ്വീഡനിലെ വിവിധ സൈനിക യൂണിറ്റുകൾ സന്ദർശിക്കുന്ന ഇദ്ദേഹം മുതിർന്ന വ്യോമസേന ഉദ്യോഗസ്ഥരുമായിട്ട് ആശയവിനിമയം നടത്തും വ്യോമ മേഖലയിൽ ഇരു രാജ്യങ്ങളും ത്ത്മില്ലുള്ള സഹകരണം ശക്തമാക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൃഷ്ടിപരമായ ആൾയവിനമയവും ഈ സന്ദർശനം ലക്ഷ്യം വെയ്ക്കുന്നു

ഇന്നലെ വൈകിട്ടോടെ മേഖലയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ദ്രുതകർമ്മസേന വിഭാഗത്തിനു നേരെ തീവ്രവാദികൾ ആക്രമണം നടത്തുകയായിരുന്നു കൊല്ലപ്പെട്ടവരെ തിരിച്ചറിഞ്ഞിട്ടില്ല

സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു ഇന്ത്യൻ ഹൈക്കമ്മീഷണിലെ നയതന്ത്രജ്ഞർക്കും ളൂദ്യോഗസ്ഥർക്കും സ്വതന്ത്രമായും ഭയാശങ്കകൾ ഇല്ലാതെയ്യും പ്ലിവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ഇന്ത്യ്ക്ആവ്ശ്യപ്പെട്ടു ഇസ്ലാമാബാദിലെ സെറീന ഫ്ലോട്ട്ടലിലാണ് ശനിയാഴ്ച ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത്

ഐ ഉദ്യോഗസ്ഥരാണ് ഇതിനു പിന്നിലെന്ന് ഹൈക്കമ്മിഷൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു

വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാന വിഷയങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കുക്ക്കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കു ക വിദ്യാർത്ഥികളിൽ ധാർമ്മിക ബോദ്ധർ വളർത്തുക ശാസ്ത്രീയവും വിവേകപര വുമായ ഗുണവിശേഷണങ്ങൾ ഫ്ളൂർത്തുക എന്നിവയ്ക്കൊപ്പം രാജ്യത്തിന്റെ ചരി ത്രവും സ്വാതന്ത്യ സമര നേത്രാക്കളുടെ ചരിത്രവും പാഠ്യ ഭാഗമാക്കണമെന്നും അദ്ദേഹ്ട് പ്റഞ്ഞു യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാനും നൂതന സാങ്കേതിക വിദ്യ ഉറപ്പാക്കാനും വിദ്യാഭ്യാസവും വ്യവസായവും കൂട്ടിച്ചേർത്ത് പുത്തൻ മാറ്റങ്ങൾ കൊണ്ടുവരേ ണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വ്യവസായ കാർഷിക മേഖലയിലെ മിക വിനും വിദ്യാർത്ഥികളിൽ വ്യവസായിക മനോഭാവം വളർത്തുന്നതിന് വിദ്യാ ഭ്യാസ മേഖലയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി വിദ്യാർത്ഥികളെ തൊഴിൽ നൈപുണ്യമുള്ളവർ ആക്കി മാറ്റുക മാത്രമല്ല അവർക്ക് ഭാഷാപരവും സാങ്കേതികവുമായ കഴിവുകൾ വികസിപ്പിക്കുകയും വ്യാവസായിക നൈപുണ്യം വളർത്തുകയും സ്വന്തമായി തൊഴിൽ കണ്ടെ ത്താൻ പ്രാപ്തരാക്കുകയും വേണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ന്യൂസ് ഡസ്ക് ആകാശവാണി

സംസ്ഥാന ഗവൺമെന്റുകളോടും പൊതുജനങ്ങൾഉൾപ്പെടെ എല്ലാവരോടും ചർച്ച ചെയ്തശേഷമേ ത്രിഭാഷാനയം സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുകയുളളൂവെന്നും അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം സംബന്ധിച്ച കരട് റിപ്പോള്ട്ട് മാത്രമാണ് മാനവ വിഭവശേഷി മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുളളത്പ്പ് ് ഇത് സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നുളള ശുപാർശികൂടി പരിഗണിച്ചശേഷം മാത്രമേ നയവുമായി ഗവൺമെന്റ് മൂന്നോട്ടു പോവുകയുളളൂ ഒരു ഭാഷയും ഒരു വിദ്യാഭ്യാസ സ്മാന്ത്തിലും അടിച്ചേൽപ്പിക്കില്ലെന്നും പുതിയ ദേശീയ വിദ്യാഭ്യമുൻനിയം സംബന്ധിച്ച് നയപരമായ തീരുമാനം ഗവൺമെന്റ് ഏടുത്തിട്ടില്ലെന്നും വിദ്യാഭ്യാസ സെക്രട്ടറി ആർ

എല്ലാ ഇന്ത്യൻ ഭാഷകളുടെയും വികാസത്തിനും പ്രോത്സാഹനത്തിനും നരേന്ദ്രമോദി ഗവ പ്രതിജ്ഞാ ബദ്ധമാണെന്നും ഭാഷകൾക്കുമേൽ വിവേചനം ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി

നഗരത്തിലെ തിരക്കേറിയ ഭാഗത്താണ് സ്ഫോടനമുണ്ടായത് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് സിറിയയിലെ റാഖയിൽ കുർദിഷ് നേതൃത്വം നൽകുന്ന സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സഡിന്റെ പ്രധാന കേന്ദ്രത്തിൽ കാർബോംബ് സ്ഫോടനമുണ്ടായി പത്തുപേർ കൊല്ലപ്പെട്ട്ഒരു ദിവസം പിന്നിടുമ്പോഴാണ് വീണ്ടും സ്ഫോടനമുണ്ട്ടുയത്

ഇന്ന് ആതിഥേയരായ ഇംഗ്ലണ്ട് പാകിസ്ഥാനെ നേരിടും

ബുധനാഴ്ച ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മൽസരം നടക്കുന്നത്

ലോക രണ്ടാം നമ്പർ താരം നദാൽ അർജന്റീനിയൻ ത്ത്രാര്ം ജുവാൻ ഇഗ്നാഷിയെയാണ് പരാജയപ്പെടുത്തിയത് മൂന്നാം സീഡ് റോജർ ഫെഡറർ അർജന്റീനിയൻ ത്ടാർമായ ലിയനാർഡോ മേയറെ പരാജയപ്പെടുത്തി ഇരുപ്പത്തിനാലാം സീഡ് വാവ്റിങ്ക സ്റ്റെഫാനോസ് സിറ്റ്സി പാസിനെയാണ് പ്രാജയപ്പെടുത്തിയത് വനിതാസിംഗിൾസിൽ അമേരിക്കൻ താരം സ്രൊവാൻ സ്റ്റീഫൻസ് ഗാർബിൻ മുഗുരിസയെ പരാജയപ്പെടുത്തി

ഇതോടെ ടൂർണമെന്റിലെ ഇന്ത്യൻ സാനിധ്യം അവസാനിച്ചു

ഒരു സശസ്ത്ര സീമാബെൽ സൈനികനാണ് വീരമൃത്യു വരിച്ചത് നാല് പേർക്ക് പരിക്കേറ്റു നാല് നക്സലുകൾക്കു നേരെ പോലീസ് വെടിയുതിർത്തതായും എന്നാൽ ഇവരുടെ മൃതദേഹം ഇനിയും കണ്ടുകിട്ടിയിട്ടില്ലെന്നും ദുംക പോലീസ് സൂപ്രണ്ട് വൈ

ജെ

മുംബൈയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിലെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസ് ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മൽസരിക്കുക

എല്ലാ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ളവരും വിമാനയാത്രയുടെ ഭാഗമാകും

തീർത്ഥാടനത്തിനായുളള ഓൺലൈൻ രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം ജമ്മുകാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് കഴിഞ്ഞ ആഴ്ചയാണ് നിർവ്വഹിച്ചത്

അതേസമയം രാജസ്ഥാ്തിലു്ം മധ്യപ്രദേശിലും ഉഷ്ണതരംഗം തുടരും